ചൈനയിലെ വുഹാനിൽ നിന്ന് മടങ്ങിവന്ന ഇന്ത്യക്കാർക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് കേന്ദ്രം

കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പാറമടകൾ പാടില്ലെന്നതാണ് കേന്ദ്ര നയമെന്ന് കേന്ദ്ര സഹമന്ത്രി വി

വ്രതാനൂഷ്ഠാനങ്ങളുടെ നിറവിൽ ഇന്ന് മഹാശിവരാത്രി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോണൾഡ് ട്രംപിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കും

കൊളറാഡോയിൽ റാലിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ വോയ്സ് ഇന്ത്യാ സന്ദർശന വേളയിൽ പരസ്പര വാണിജ്യം ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് ട്രംപ് വ്യക്തമാക്കി പ്രതിരോധം സുരക്ഷ വാണിജ്യം എന്നിവ ഉൾപ്പെടെ ഉഭയകക്ഷി താല്പര്യമുള്ള വിഷയങ്ങൾ ശ്രീ

എസ് വ്യാപാരം അമേരിക്കയുടെ ആഗോള വാണിജ്യത്തിന്റെ മൂന്നു ശതമാനമാണ് വളരെ ഫലപ്രദമായ ബന്ധമാണ് ഇന്ത്യയും യു

അഹമ്മദാബാദിലെ സർദാർ പാട്ടേൽ സ്റ്റേഡിൽ ഡോണൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്റ് ഉദ്ഘാടനം ചെയ്യും പതിനായിരം പേരെ ഉൾപ്ക്കാള്ളാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണിത് ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൌൺസിലിന്റെ ഗോൾഡ് ഗ്രീൻ സർട്ടിഫിക്കറ്റ് സ്റ്റേഡിയത്തിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷവർദ്ധൻ ന്യൂഡൽഹിയിൽ ഉന്നതോദ്യോഗസ്ഥരുടെ യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതിരോധ വസ്ത്രങ്ങളും മാസ്ക്കുകളും ആവശ്യത്തിന് കരുതലുണ്ടെന്ന് ആരോഗ്യ സെക്രട്ടറി പ്രീതി സുധൻ യോഗത്തിൽ വെളിപ്പെടുത്തി

ഈ മൂന്നുപേരും ആശുപത്രിവിട്ട് വീടുകളിലെത്തിയെന്നും ജാഗ്രത തുടരണമെന്നും മന്ത്രി പറഞ്ഞു

ബി ഐ

ഏറെ ബുദ്ധിമുട്ടിയാണ് മിഷേലിനെ ഇന്ത്യയിൽ എത്തിച്ചതെന്ന് അന്വേഷണ ഏജൻസികൾ ൂഅറിയിച്ചു

പൂഞ്ചിലെ ഷാപൂർ സെക്ടറിൽ പ്രകോപനം കൂടാതെ ്കനത്ത ഷെൽ ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങളും ആക്രമിച്ചു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡെപ്യൂട്ടി കമ്മീഷ്ണർ രാഹുൽ യാദവ് ആകാശവാണിയോട് പറഞ്ഞു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്

കേസിലെ കുറ്റവാളികളിലൊരാളായ നളിനി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് നളിനി ഹർജി സമർപ്പിച്ചത് കേന്ദ്രാനുമതിയില്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനത്തിന് പ്രസക്തിയില്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ജി രാജഗോപാലൻ കോടതിയെ ധരിപ്പിച്ചു

സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിരവധി കാറികൾ തുറക്കാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു

കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു

ഇതിനായുള്ള സ്ഥലം ഏറ്റെടുക്കലാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ അതിവേഗ തീവണ്ടിപ്പാതയ്ക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് ദേശീയപാത വികസനകാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേനിലപാടാണുള്ളതെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു

വോയ്സ് മാറിയ സാഹചര്യങ്ങളിൽ ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ആശയവിനിമയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്ന് ശ്രീ

ഗുണഭോക്താക്കളിൽ കൃത്യമായി എത്തിച്ചേരാൻ ഉപകരിക്കുന്ന വിധം ദൂരദർശൻ സംപ്രേക്ഷണം ചെയ്യുന്ന ഗുഡ്ന്യൂസ് പോലെ ക്രിയാത്മത വാർത്തകൾ നൽകണം നൂതന പരിപാടികൾ ആവിഷ്കരിച്ച് മാറിയ കാലത്തിനനുസരിച്ച് പ്രചാരണ രീതികളിൽ മാറ്റം വരുത്തണമെന്ന് ശ്രീ

ന്യൂസ് ഓൺ എയർ ആപ്പുമായി ബന്ധപ്പെട്ട പ്രസാർഭാരതിയുടെ ശ്രമങ്ങളെ അദ്ദേഹം ശ്ലാഘിച്ചു പുതിയ സാങ്കേതിക വിദ്യ അവലംബിച്ച് മറ്റ് മാധ്യമ യൂണിറ്റുകുളും നൂതന സംരംഭങ്ങൾ ആവിഷ്കരിക്കണം പ്രചാരണ രംഗ്ലിൽ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകരിച്ച് അനിവാര്യമാണെന്ന് ശ്രീ

ശിവക്ഷേത്രങ്ങളിൽ നാളെ രാവിലെ വരെ നീളുന്ന പ്രത്യേക പൂജകൾ അരങ്ങേറും സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്

നമ്മുടെ രാജ്യത്തെ സന്ന്യാസിവര്യന്മാരും ഋഷികളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച മഹത്തരമായ ആശയമാണ് വസുധൈവ കൂടുംബകം എന്ന് ദ്ശ്രീ

ബ്രഹ്മകുമാരീസ് എന്ന സംഘടനയാണ് ശിവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്

തിങ്കളാഴ്ച ബംഗ്ലാദേശിനോടാണ്ട് ഇന്ത്യയുടെ അടുത്ത മത്സരം

മത്സരങ്ങൾ ഒഡീഷയിലെ കട്ടക്ക് ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും